കത്വവയിൽ എട്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടമാനഭംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ

ബംഗാളിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും ധരിപ്പിച്ചെന്ന് ഗവർണർ കേസരി നാഥ് ത്രിപാഠി

ഡി എഫ് ഗവൺമെന്റിന്റെ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി

ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാന താരമായ യുവ്രാജ് സിംഗ് രാജ്യാന്തരക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു

കുറ്റകൃതൃം ആസൂത്രണം ചെയ്ത മുഖ്യ പ്രതിയും ഗ്രാമമുഖ്യനുമായ സാഝി റാം സ്പെഷ്യൽ പൊലീസ് ഓഫീസറായ ദീപക് ഖജൂരിയ സാഝി റാമിന്റെ സുഹൃത്ത് പർവ്വേഷ് കുമാർ എന്നിവർക്കാണ് കോടതി ജീവപര്യന്തം വിധിച്ചത്

കേസിലെ മറ്റൊരു പ്രതിയും ശിക്ഷിക്കപ്പെട്ട സാഝി റാമിന്റെ മകനുമായ വിശാലിനെ കോടതി വെറൂതെ വിട്ടൂ

ഉച്ചകോടിക്ക് സമാന്തരമായി റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് പശ്ചിമ മേഖല കാര്യങ്ങൾക്കായുള്ള സ്രെക്രട്ടറി ഗിതേഷ് ശർമ്മ അറിയിച്ചു ഉച്ചകോടിയ്ക്കിടയിൽ ഫ്ട്യാന്ന്മന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻച്ചാട്നു്ം തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാവില്ലെന്ന് വിദേശകാര്യ മന്ത്രൂലിൽ അറിയിച്ചു

ശ്രീലങ്കയ്ക്ക് തുടർച്ചയായ പിന്തുണ നൽകുന്ന നരേന്ദ്രമോദിയുടെ നടപടി ഭീകരാക്രമണത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ദ്വീപ് രാഷ്ട്രം സന്ദർശിക്കാൻ കൂടുതൽ പേർക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകരുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ശ്രീലങ്ക ഇന്ത്യ മാലദ്വീപ് ത്രികക്ഷി ബന്ധം ശക്തിപ്പെടുത്തി മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രീ നരേന്ദ്ര മോദിയുമായി ചർച്ച ചെയ്തതാ യും അദ്ദേഹം അറിയിച്ചു

എഫ് ഗവൺമെന്റിന്റെ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി

ജീർണ്ണത യുടെ കാലത്ത് നിന്ന് കേരളം പൂഷുർോഗതിയിലേക്ക് നീങ്ങുക യാണെന്ന് റിപ്പോർട്ട് പുറത്തിറക്കിക്ക്കാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കേരളത്തില്പ്പൂ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായ മാറ്റം രാജ്യം മുഴുവനും ശ്രദ്ധീക്കുന്നു

തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ പി

ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയങ്ങൾ പ്രളയാനന്തര പുനർനിർമ്മാണം കിഫ്ബിയുടെ പ്രവർത്തനം സംസ്ഥാനത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ തുടങ്ങിയ വിവരങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടു ത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടു പ്പിനെ തുടർന്ന് ബംഗാളിലുണ്ടായ അക്രമസംഭവങ്ങളുടെ പേരിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വാക്പോര് മുറുകിയ ഘട്ടത്തിലാണ് ഗവർണർ ഡൽഹിയിലെത്തിയത്

വ്യാജ ബാങ്ക് അക്കൌള്ട്ട് കേസിലാണ് ഇസ്താമബാദിലെ വീട്ടിൽ നിന്ന് സർദാരിയെ രാജ്യുത്തെ അഴിമതി വിരുദ്ധ വിഭാഗം അറസ്റ്റു ചെയ്തത് അറസ്റ്റിന്റു മുൻപ് ലഭിച്ച ജാമ്യം നീട്ടണമെന്ന സർദാരിയുടേയും സഹോദ്യ്ക് ഷ്മരിയാൽ തൽപൂരിന്റേയും അപേക്ഷ ഇസ്താമബാദ് ഹൈക്കോട്ടിയി നിരസിച്ചതിനെ തുടർന്നാണ് സർദാരിയെ അറസ്റ്റു ചെയ്ത്

വ്യാജ ബാങ്ക് അക്കൌണ്ടുകൾ നല്കി പണം നിക്ഷേപി ക്കുകയും പാകിസ്ഥാനിൽ നിന്നും പുറത്തേക്ക് വ്യാജ അക്കൌണ്ടുകൾ വഴി പണം കൈമാറ്റം നടത്തിയെന്നുമാണ് കേസ്

ഇന്റർ നാഷണൽ സെന്റർ ഫോർ ഓട്ടോമോട്ടീവ് ടെക്നോളജി ഡയറക്ടർ ദിനേശ് ത്യാഗിയാണ് ഡൽഹിയിൽ ഇത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയത്

സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ ആവശ്യ മായ നിയമഭേദഗതികൾ ഉടൻ കൊണ്ടുവരുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അറിയിച്ചു നിലവിൽ സംവരണാനുകൂല്യം ലഭിക്കു ന്നവരെ ഈ തീരുമാനം ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഒരു റിപ്പോർട്ട്

അക്രമണോത്സുക നായ ഇടംകയ്യൻ ബാറ്റ്സ്മാനായ്ക്ക്യുവ്രാജ് ഒരു ഓവറിലെ ആറ് ബോളും സിക്സ് പറത്തുക എന്നീ മുഅത്യ അപൂർവ്വ റെക്കോർഡിനും ഉടമയായി

കരിയറിന്റെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ അർബുദ ബാധിതനായ യുവ്രാജ് രോഗത്തെ അതിജീവിച്ച് കളിക്കളത്തിലേക്ക് തിരിച്ചുവന്നത് കായിക രംഗത്തെ പ്രചോദനാത്മകമായ ഏടുകളിലൊ ന്നാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ടി ഒ സബ് ആർ ടി ഒ പൊലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ഫോൺ നമ്പ രുകൾ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ശുപാർശ ചെയ്തു എല്ലാ ബസുകളിലും ഈ നമ്പരുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് ഗതാഗത കമ്മീഷണർ ഉറപ്പുവരുത്തണം സ്കൂൾ കുട്ടികൾക്ക് യാത്രാവേളകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ജില്ല കളക്ടർമാർ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദേശിച്ചു